പോലുള്ള പുതിയ കാർഷിക രീതികളും സ്വായത്തമാക്കണമെന്ന് പ്രധാന്റുമീന്ത്രി നരേന്ദ്രമോദി

നിർമ്മിച്ച കൊച്ചി സെന്റ് തെരേസാസ് കോളേജിന്റെ പ്രവർത്തനം പ്രശംസിന്റ്റീയമാണെന്നും മൻ കി ബാതിൽ പ്രധാനമുന്തി

പ്രചാരണ രംഗത്ത് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം ഉൌർജ്ജിതം വിശുദ്ധവാരത്തിന് തുടക്കമിട്ട് ഇന്ന് ഓശാന ഞായർ

ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും കുരുത്തോല പ്രദക്ഷിണവും

പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാതിൽ ജനങ്ങളോട് സംവദിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് തേനീച്ച വളർത്തലിലൂടെ മധുര വിപ്ലവത്തിന് തുടക്കം കുറിക്കാമെന്നും അദ്ദേഹം വൃക്തമാക്കി കർഷകർ മറ്റു കൃഷിയോടൊപ്പം തേനീച്ച വളർത്തലിനും പങ്കാളികളാകണ്മെന്നും അദ്ദേഹം പറഞ്ഞു

രാജ്നാഥിസിംഗ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ജൂഡീഷൽ അന്വേഷണം ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇത് ഭരണഘടനയ്ക്ക് എതിരാണ്

ശബരിമലയിൽ വിശ്വാസസംരക്ഷണത്തിന് നിയമം കൊണ്ടുവരുമെന്നും ശ്രീ രാജ്നാഥ്സിംഗ് പറഞ്ഞു

കിറ്റ് സാമൂഹ്യ പെൻഷൻ എന്നിവയുടെ വിതരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വിശേഷാവസരങ്ങളിൽ പെൻഷനും ശമ്പളവും നേരത്തെ നൽകാറുണ്ട്

തെരഞ്ഞെട്ടൂപ്പ് കാലത്ത് കോവിഡ് വ്യാപനം തടയാൻ കൂടുതൽ ജീാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു വോട്ടർ പട്ടിക വോട്ടർ പട്ടികയിൽ ഇരുട്ട് പ്രോട്ടുകൾ ചേർക്കുക വഴി ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാിന്റാണ് ശ്രമിക്കുന്നതെന്ന് എ ഐ

ജനറൽ സെക്രട്ടറി കെ

വേണുഗോപാൽ

ഇക്കാരൃത്തിൽ സത്വര നടപടി വേണമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടതായും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു ജനങ്ങളിൽ നിന്ന് ലഭിച്ച് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫ് മാനിഫെസ്റ്റോ തയ്യാറാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങൾക്ക് കിറ്റ് നൽകുന്നത് തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടു കൊണ്ടാവരുതെന്നും അദ്ദേഹം കൂട്ടിചേർത്തു പ്രചാരണം ഇൻട്രോ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി ് നിൽക്കെ എല്ലാ രാഷ്ട്രീയ പാർടികളുടെയും ദേശീയ നേതാക്കളുടെ സാന്നിദ്ധ്യാം പ്രചാരണത്തിന് മാറ്റു കൂട്ടുന്നു

രാവിലെ വർക്കലയിൽ റോഡ്ഷോയിൽ പങ്കെടുത്ത അദ്ദേഹം ശിവഗിരിയിലെ മഹാസമാധിമന്ദിരവും സന്ദർശിച്ചു

കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഇന്ന് ്വൈകീട്ട് കോഴിക്കോട് എഴ്ചത്തൂരിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും സിപിഎം ജനറൽ സെക്രട്ടറി സ്പീതാറാം യെച്ചൂരി പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടും തിരുപ്പന്ന്തപുരം ജില്ലയിലെ പിവിധ് മണ്ഡലങ്ങളിൽ പ്രചാരണം ന്ടത്തുന്നു സിപിഐ ദേശീയ സെക്രട്ടറിയേറ്റ് അംഗം അമർജിത് കൌർ കൊല്ലം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയാണ്്

സി

കോൺഗ്രസ് നേതാവ് ് സൽമാൻഖുർഷിത് സംസ്ഥാനത്ത് ഇന്ന് പ്രചാരണം നടത്തും ന്യൂസ് ഡസ്ക് ആകാശവാണി

ചൊവ്വാഴ്ച വരെ ഓരോ മണ്ഡലത്തിലും ക്രമീകരിച്ച പ്രത്യേക പോസ്റ്റൽ വോട്ടിങ് സെൻററിലാണ് തപാൽ വോട്ടെടുപ്പ്

വൈദ്യുതി പോസ്റ്റിൽ ബോർഡു കെട്ടവേ തെരുവു വിളക്കിന്റെ വയറിൽ കുടുങ്ങിയാണ് അപകടം

തദ്ദേശീയമായി നിർമ്മിച്ച കപ്പലിന് എം